ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി അഹമ്മദാബാദിലെത്തി

കൺസർവേറ്റീവുകൾക്ക് വിജയം

പത്നി മെലാനിയ മകൾ ഇവാൻകാ മരുമകൻ ജാരദ് ഖുഷ്നർ എന്നിവരും മുതിർന്ന ഉദ്യോഗസ്ഥരും രണ്ട് ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ പ്രസിഡന്റ് ട്രംപിനെ അനുഗമിക്കുന്നുണ്ട് അഹമ്മദാബാദിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു

മീ

അൽപസമയത്തിനകം മൊട്ടേര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന നമസ്തേ ട്രംപ് പരിപാടിയിൽ ഇരു നേതാക്കളും ഒരു ലക്ഷത്തോളം ജനങ്ങളെ അഭിവാദ്യം ചെയ്യും നമസ്തേ ട്രംപ് പരിപാടിയുടെ ഭാഗമായി ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യവും കലാപാരമ്പര്യവും വിളിച്ചോതുന്ന നിരവധി പരിപാടികൾ അരങ്ങേറും

അഹമ്മദാബാദിലെ പരിപാടിക്കു ശേഷം ട്രംപും സംഘവും താജ്മഹൽ സന്ദർശിക്കുന്നതിനായി ആഗ്രയിലേക്ക് പോകും ദൃ ഖേരിയ വിമാനത്താവളത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യ നാഥും ഗവർണർ ആനന്ദിബെൻ പട്ടേലും ട്രംപിട്ട്ന് സ്വീകരിക്കും ഇന്ന് വൈകിട്ട് ഡൽഹിയിലേക്ക് തിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനും പത്നിയ്ക്കും നാളെ രാഷ്ട്രപതി ഭവനിൽ ഔപചാളിക് വരവേൽപ്പ് നൽകും

ഹൈദരാബാദ് ഹൌസിൽ പ്രധാന്മ്ന്തി മോദിയുമായി അദ്ദേഹം പ്രതിനിധിതല ചർച്ച നടത്തും വ്യാപാര്യ നിറ്റ്ക്ഷേപം പ്രതിരോധം ഭീകരവിരുദ്ധ പ്രവർത്തനം ഊർജ്ജസുരക്ഷ ഇന്തോ പീസഫിക് മേഖലയിലെ സ്ഥിതിഗതി തുടങ്ങി ഉഭയകക്ഷി മേഖലയിലെ വിവിധ വിഷയങ്ങൾ ഇരുനേതാക്കളും ചർച്ച ചെയ്യും

അമേരിക്കയിൽ നിന്നും ട്രംപിനെ അനുഗമിക്കുന്ന ഉന്നതതല പ്രതിനിധി സംഘത്തിൽ ട്രഷറി സെക്രട്ടറി വാണിജ്യ സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഊർജ്ജ സെക്രട്ടറി തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടുന്നു നാളെ വൈകിട്ട് ട്രംപ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെ സന്ദർശിക്കും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സ്വതന്ത്ര ഇന്ത്യ സന്ദർശിക്കുന്ന ഏഴാമത്തെ അമേരിക്കൻ പ്രസിഡന്റാണ് ഡോണൾഡ് ട്രംപ്

അദ്ദേഹം ഒരു ദിവസം മാത്രമാണ് ഇന്ത്യയിൽ തങ്ങിയത്

വാജ്പെയ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ചിരുന്നു

വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനം സഹകരണം പങ്കാളിത്തം എന്നിവയാണ് ഗുവഹത്തിയിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ മുഖ്യ കാര്യപരിപാടി ഇന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ സംബന്ധിക്കും

ഇവരിൽ ഏഴ് പെൺകുട്ടികൾ ഉൾപ്പെടുന്നു തമിഴ്നാട്ടിലെ സ്കൂളുകൾ പഞ്ചായത്തുകൾ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ ക്ഷേത്രങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന സംഘം തമിഴ്നാട് ഗവർണർ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു സന്ദർശനം ആനന്ദപ്രദമായിരുന്നുവെന്ന് സംഘം വൃക്തമാക്കി

കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ പ്രതിവർഷം ആറായിരം രൂപ സർക്കാർ സഹായമായി ലഭിക്കുന്ന പദ്ധതിയാണിത് മൂന്ന് മാസത്തിലൊരിക്കൽ രണ്ടായിരം രൂപ വീതമാണ് ബാങ്ക് അക്കൌണ്ടിലെത്തുക രണ്ട് ഹെക്ടർ വരെ കൃഷിഭൂമിയുള്ള ചെറുകിട നാമമാത്ര കർഷകർക്ക് വരുമാനം ഉറപ്പാക്കാനാണ് പദ്ധതി തുടക്കത്തിൽ ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും പിന്നീട് ഭൂമിയുടെ വിസ്തൃതി നോക്കാതെ എല്ലാ കർഷകരെയും കിസാൻ സമ്മൂൻ നിധിയിൽ ഉൾപ്പെടുത്തി ഇതുവരെ കേന്ദ്രം പദ്ധതിയിൻ കീഴിൽ അൻപ്പതിനായിരം കോടി രൂപ വിതരണം ചെയ്തു കഴിഞ്ഞു

പുതു തലമുറയിലെ വിദ്യാർത്ഥിളിൽ നൂതന ആശയങ്ങൾ വളർത്തി അവരിൽ സംരംഭകത്വം വികസിപ്പിക്കുകയാണ് മിഷന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം ആകാശവാണി വാർത്തകളോട് പറഞ്ഞു

ചൈനയിലെ കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ലോകാരോഗൃ സംഘടനയുടെ മുന്നറിയിപ്പ് പരിഗണിച്ചാണ് നടപടിയെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യം നേരിട്ടതിൽ വച്ച് ഏറ്റവും വലിയ പൊതുജന ആരോഗ്യ അടിയന്തരാവസ്ഥയാണ് കൊറോണ വൈറസ് ബാധയെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അറിയിച്ചു കൊറോണ ബാധ നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടു ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ചൈനയ്ക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ കൊറോണ മരണം നടന്നതും ഇറാനിലാണ് മരണസംഖ്യ വർദ്ധിക്കുന്നത് അയൽരാജ്യങ്ങളെ ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്

ചൈന ഇറാൻ ദക്ഷിണകൊറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുളളവർക്ക് ജോർദാൻ വിലക്കു കൽപിച്ചു

കഴിഞ്ഞ ദിവസം ഇവിടെയെത്തിയ ട്രെയിൻ യാത്രക്കാളിൽ കരുപേർക്ക് കൊറോണ ബാധ സംശയിച്ചതിനാലാണ് നടപടി

വിജയികളുടെ പേരു വിവരം പ്രഖ്യാപിച്ചെങ്കിലും അവരുടെ രാഷ്ട്രീയ നിറം പ്രതിപാദിച്ചിട്ടില്ല

നിയമസഭയുടെ ഇരുവിഭാഗങ്ങളായ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയും ലെജിസ്ലേറ്റീവ് കൌൺസിലിന്റെയും സംയുക്ത യോഗത്തെ ഗവർണർ ഫാഗു ചൌഹാൻ അഭിസംബോധന ചെയ്യും

ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാമത്തെ ഗ്രാൻഡ് മാസ്റ്ററാണ് തമിഴ്നാടുകാരനായ ഗുകേഷ്